പരീക്ഷകളുടെ നടത്തിപ്പിനായി ദേശീയ റിക്രൂട്ട്മെന്റ് ഏജൻസി രൂപീകരിക്കാനുള്ള തീരുമാനത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം

സംരക്ഷിക്കുന്നതിൽ ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തനങ്ങൾ നിസ്തൂലമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്

ഉഭയകക്ഷി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും വിദേശകാര്യ സെക്രട്ടറി ഹർഷ് വർധൻ ശ്രിംഗ്ലയും തമ്മിൽ നടന്ന ചർച്ചയിൽ ധാരണ

വിശദാംശങ്ങളുമായി കരോൾ അബ്രഹ്ലാം

കേന്ദ്രമന്ത്രിസഭാ യോഗത്തിനുശേഷം കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ മാധൃമങ്ങളെ അറിയിച്ചതാണ് ഇക്കാര്യം തീരുമാനത്തെ ചരിത്രപരം എന്ന് വിശേഷിപ്പിച്ച കേന്ദ്രമന്ത്രി രാജ്യത്തെ യുവാക്കളുടെ ദീർഘനാളായുള്ള ആവശ്യത്തിനാണ് ഇതോടെ പരിഹാരമായിരിക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ടു തിരുവന്തപുരം അടക്കം മൂന്ന് വിമാനത്താവളങ്ങളിലെ സ്വകാര്യ പങ്കാളിത്തം വർധിപ്പിക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം അനുവാദം നൽകി

യോഗ്യത പരീക്ഷകളുടെ എണ്ണം കുറയ്ക്കുന്നതിനൊപ്പം നടപടിക്രമങ്ങളുടെ സുതാര്യത വർദ്ധിപ്പിക്കാനും പുതിയ നീക്കം ഉപകരിക്കുമെന്ന് അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു കോവിഡ് വെല്ലുവിളികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മൺസൂൺ കാലത്ത് ആവശ്യമായ മുൻകരുതലുകൾ സ്വീക രിക്കാൻ രാജ്യത്തെ പൌരൻമാർ ശ്രദ്ധിക്കണമെന്ന് പ്രധാന മന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു കൊതുക് പരത്തുന്നതട ക്കമുള്ള രോഗങ്ങളുടെ സമയമാണിതെന്നും ഇത് മുന്നിൽ കണ്ട് കൊണ്ട് കൃത്യമായ തയ്യാറെടുപ്പികൾ സ്വീകരിക്കേണ്ട തുണ്ടെന്നും അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു

കോവിഡ് കാലത്ത് ആവശ്യമുള്ളവർക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടാണ് ഈ സംവിധാനം നടപ്പാക്കിയത്

ഏഴ് കോവിഡ് മരണങ്ങളും സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തു

ഇന്നലെ കണ്ടെത്തിയ മൂന്നാമത്തെ മൃതദേഹവും ഇന്ന് തിരിച്ചറിഞ്ഞു

കോവിഡ് മൂലമുളള മരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഇന്തൃ

കോവിഡ് വാക്സിൻ സംബന്ധിച്ച പരീക്ഷണങ്ങൾ ഇന്തൃയിൽ പുരോഗമിക്കുകയാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേയ്ഖ് ഹസീനയുമായി ശൃംഗ്ല ചർച്ച നടത്തി

ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ പുരോഗതി ഇരു മന്ത്രിമാരും വിലയിരുത്തി പരസ്പര ബന്ധവും വികസന സഹകരണവും ഉറപ്പാക്കാൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമെന്ന് ശ്രീ എസ് ജയശങ്കർ അറിയിച്ചു

ന്യൂഡൽഹി സ്റ്റേനാഭിവനിൽ ആരംഭിച്ച നാവികസേനയിലെ ഉന്നത ഉദ്യോഗ്സ്ഥരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

കോവിഡിനെ തുടർന്ന് വിദേശത്ത് കുടുങ്ങിയ ഇന്തൃക്കാരെ തിരികെയെത്തിക്കാൻ നാവികസേന നടത്തിയ സമുദ്രസേതു ദൌതൃത്തെ ശ്രീ രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു

ലോകത്തിലെ തന്നെ വലിയ ഒഴിപ്പിക്കൽ ദൌതൃങ്ങളിലൊന്നായ സമുദ്രസേതുവിന്റെ വിജയത്തിലൂടെ ഇന്തൃയുടെ യശസ് അന്താരാഷ്ട്രതലത്തിലേക്ക് ഉയർത്താൻ നാവികസേനക്കായെന്നും മന്ത്രി പറഞ്ഞു സേനയുടെ കോവിഡ് പ്രതിരോധ ആശ്വാസ പ്രവർത്തനങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു

മേഖലയിൽ തിരച്ചിൽ നടത്തുകയായിരുന്ന കരസേന സി ആർ പി എഫ് ജമ്മുകാശ്മീർ ്പ്രോലീസ് സംഘത്തിന് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു സേനയുടെ പ്രത്യാക്രമണത്തി ലാണ് ഒരാൾ കൊല്ലപ്പെട്ടത്

മസ്തിഷ്ത ശസ്ത്രക്രിയയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹം ഇപ്പോഴും വെന്റിലേറ്റ റിൽ തുടരുകയാണെന്ന് പ്രസ്താവനയിൽ പറയുന്നു

പല നദികളും കരകവിഞ്ഞാഴുകുകയാണ്